മുരളിധരൻ എം

എ വടകരയിൽ മത്സരിച്ചേക്കും

ഗ്ലോവ മുഖ്യമന്ത്രി മനോഹർ പരീക്കറുടെ മരണത്തെ തുടർന്ന് ഇന്നലെ മാറ്റിവെച്ച പാർട്ടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഇന്ന് വൈകീട്ട് ന്യൂഡൽഹിയിൽ ചേരും

പാർട്ടി സംസ്ഥാന ഘടകം നൽകിയ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇന്നത്തെ യോഗത്തിൽ അന്തിമ തീരുമാനമുണ്ടാകുമെന്നാണ് സൂചന

ഡി എ ഘടക കക്ഷിയായ ബി ഡി ജെ

പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി തൃശ്ശൂരിൽ മത്സരിക്കുമെന്നാണ് സൂചന അഞ്ച് മണ്ഡലങ്ങളിലാണ് ബി ഡി ജെ എസ്

മുരളീധരൻ എം

സി സി

ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് പ്രചാരണം സജീവം

ഗവൺമെന്റിന്റെ കർഷക പ്രേമം വെറും തട്ടിപ്പാണെന്ന് ഇതോടെ തെളിഞ്ഞിരിക്കുകയാണെന്ന് ശ്രീ ചെന്നിത്തല് പ്രസ്താവനയിൽ ആരോപിച്ചു

ഇന്നു രാത്രി ഭൂതബലിയും വിളക്കിനെഴി ന്നെള്ളിപ്പും നടക്കും